ഇന്ന് ഹാജരാക്കണമെന്ന് സുപ്രീംകോടതി ഭൂരിപക്ഷം ഉറപ്പിക്കാൻ സ്വതന്ത്രുടെയും ചെറു പാർട്ടികളുടെയും പിന്തുണ നിർണ്ണായകം

ജാർഖണ്ഡ് നിയമസഭാ് തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിനുള്ള ന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രണ്ട് തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും

ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്നലെ അഞ്ച് സ്വർണ്ണം സ്വന്തമാക്കി

ബന്ധപ്പെട്ട രേഖകൾ ഇന്ന് രാവിലെ ഹാജരാക്കാൻ സുപ്രീംകോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു ശിവസേന എൻ സി പി കോൺഗ്രസ്സ് എന്നീ കക്ഷികൾ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി നടപടി

മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം അവസാനിപ്പിച്ചുകൊണ്ടുള്ളതും ശ്രീ ദേവേന്ദ്ര ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിച്ചു കൊണ്ടുള്ളതുമായ ഗവർണറുടെ കത്തുകൾ ഹാജരാക്കാനാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം ജസ്റ്റിസുമാരായ എൻ വി രമണ അശോക് ഭൂഷൺ സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബഞ്ച് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടുത്

അതിനിടെ ഗവൺമെന്റ് രൂപീകരണത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ അനിശ്ചിതത്വം തുടരുകയാണ്

സി

സി പി സഖ്യം ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക്മെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ഗവൺമെന്റ് രൂപീകരണത്തിനായി കോൺഗ്രസ്സ് ശിവസേന എന്നീ പാർട്ടികളുമായുള്ള സഖ്യം തുടരുമെന്ന് ശ്രീ

മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി ശ്രീ

സി പി ശിവസേന നേതാക്കളും തങ്ങളുടെ എം

സി

സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യധാര പാർട്ടികൾക്ക് ഇവരുടെ പിന്തുണ അത്യന്താപേക്ഷിതമാണ്

അതേസമയം ഗവൺമെന്റ് രൂപീകരണത്തിനായി കോൺഗ്രസ്റ്റ് എൻ

ന്യൂഡൽഹിയിൽ ഗവർണർമാരുടെ അമ്പതാമത് സമ്മേളനത്തെ അഭ്യൂസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഇത് ഗവൺമെന്റിന് പദ്ധതിയോടുള്ള പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ആദിവാസി വിഭാഗത്തിന്റെ ഉന്നിമന്ത്തിനും ് ആദിവാസി യുവാക്കളുടെ കായിക വിദ്യാഭ്യാസ വിക്കുന്നത്തീനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രീ ഗ്ല്പ്ർണർമാരോട് ആവശ്യപ്പെട്ടു

നരേന്ദ്ര മോദി ഗവർണർമാരോട് ആഹ്വാനം ചെയ്തു

നാളെയാണ് സൂക്ഷ്മ പരിശോധന വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാം

സംസ്ഥാനത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമായി തുടരുന്നു ഇന്ന് നടക്കുന്ന രണ്ട് പ്രചാരണ റാലികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇതാദ്യമായാണ് അദ്ദേഹം ജാർഖണ്ഡിലെത്തുന്നത്

വ്യോമസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സമ്മേളനത്തിൽ പങ്കെടുക്കും

നാദിയ ജില്ലയിലെ കരീംപൂർ വടക്കൻ ദിഹാജ്പൂരിലെ കാളിയഗഞ്ച് കിഴക്കൻ മിഡ്നാപൂർ ജില്ലയിലെ ഖരഗ്പൂർ എന്നിവയാണ് ഇന്ന് ജനവിധി തേടുന്ന മൂന്ന് മണ്ഡലങ്ങൾ

നിയമസഭയുള്ട ആട്ടപടിക്രമങ്ങളെ സംബന്ധിച്ച് യുവജനങ്ങൾക്കിടയിൽ അവബ്ബേൽ സൃഷ്ടിക്കുകയാണ് സമ്മേളനത്തിന്റെ മുഖ്യലക്ഷ്യമെന്ന് ദില്ലി ്നിയൂമസഭാ സ്പീക്കർ രാം നിവാസ് ഗോയൽ പറഞ്ഞു സദ്ഭരണത്തിനും ജനൌധിപത്യവൽക്കരണത്തിനും നിയമസഭ വഹിക്കുന്ന പങ്ക് സംബന്ധിച്ചു അവബോധനത്തിന് സമ്മേളനം വഴിയൊരുക്കുമെന്ന് ശ്രീ

അപകടം നടന്ന കെട്ടിടം പൊളിച്ചുമാറ്റാനും ഇന്നലെ നടന്ന സർവ്വകക്ഷി യോഗം തീരുമാനിച്ചു

എം തോമസ് ഐസക്

മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു

സംസ്ഥാനത്ത് കാലാവസ്ഥയിൽ കാര്യമായ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് കാരണം കൂടുതൽ മാസവും റോഡ് നിർമ്മാണം ദുഷ്കരമാവുകയാണെന്നും മന്ത്രി പറഞ്ഞു

ഫൈനലിൽ കാനഡയെ പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ തങ്ങളുടെ ആറാം ഡേവിസ് കപ്പ് കിരീടം സ്വന്തമാക്കിയത് ആദ്യ സിംഗിൾസിൽ ബാറ്റിസ്റ്റ ആഗട്ടും രണ്ടാം സിംഗിൾസിൽ റഫേൽ നദാലും ജയിച്ചു

ഡെനിസ് ഷപലോവിനെയാണ് നദാൽ പരാജയപ്പെടുത്തിയത്

നേരിട്ടുള്ള സെറ്റുകൾക്കായിരുന്നു നദാലിന്റെ വിജയം

ഇന്നലെ മാത്രം അഞ്ച് സ്വർണ്ണമാണ് ഇന്ത്യൻ താഴ്നങ്ങൾ ്സ്വന്തമാക്കിയത്